ഗുരുദാരയിലേക്കുള്ള എമീഗ്ലേഷൻ പോസ്റ്റായി

അമ്മയേയും എൻഫോഴ്സ്മെന്റ് ഇന്ന് ചോദ്യം ചെയ്യും

കമ്മീഷണർ രാജീവ് കുമാറിനെ സിബിഐ ഇന്നും ചോദ്യം ചെയ്യും

ആറ്റുകാൽ പൊങ്കാല മഹോൽസവത്തിന് ഇന്ന് തുടക്കം

ജജാർ ജില്ലയിലെ ബദ്സയിൽ ദേശീയ കാൻസർ ചികിത്സാകേന്ദ്രം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും ഫരീദാബാദിലെ ഇ

ഐ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവ്വഹിക്കും കർണ്ണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

സർജിക്കൽ ഒാ്ങ്കോളജി പാലിയേറ്റീവ് കെയർ ന്യൂക്സിയർ മെഡിസിൻ തുടർങ്ങിയ വിഭാഗങ്ങൾ ഇവിടെ സജ്ജമായി ഉത്തരേന്ത്യിൽ ഇ

ഐ കോർപ്പറേഷൻ നിർമ്മിച്ച ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് ഫരീദാബാദിലേത്

ഐ കോർപ്പറേഷന് കീഴിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചുവരുന്നത് കണക്കിലെടുത്താണ് മെഡിക്കൽകോളേജ് ആരംഭിച്ചത് കർണാലിലെ നിർദ്ദിഷ്ട ദീൻ ദയാൽ ഉപാധ്യായ ആരോഗൃസർവകലാശാലയുടെ ശിലാസ്ഥാപനവും ശ്രീ

സ്വച്ഛശക്തി പുരസ്കാരങ്ങളും പ്രധാനമന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്യും

നിയമപരമായ രേഖകൾ കൈവശമുള്ള എല്ലാ യാത്രികരും ഈ പരിശോധനാ കേന്ദ്രം വഴിയാണ് പോകേണ്ടതെന്ന് ആഭൃന്തരമന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചു ചീഫ് ഇമിഗ്രേഷൻ ഓഫീസറായിരിക്കും ഇന്ന് മുതൽ പരിശോധനാ കേന്ദ്രത്തിന്റെ അധികാരി

കമ്മീഷന് വീണ്ടും നിവേദനം സമർപ്പിക്കാൻ അഭിഭാഷ്കനും ബിജെപി നേതാവുമായ അശ്വനി ഉപാധ്യായോട് ചീഫ് ജ്സ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ച് ആവശ്യപ്പെട്ടു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് അനാച്ഛാദനം നിർവ്വഹിക്കുക ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും

ആന്ധ്രാപ്രദേശിലെ ജനങ്ങൾക്ക് എഴുതിയ തുറന്ന കത്തിലാണ് ശ്രീ ഷായുടെ ആരോപണം നായിഡുവിന്റെ അടിക്കടിയുളള നിലപാട് മാറ്റവും കേന്ദ്ര ഗവൺമെന്റിന് എതിരെയുളള നയംമാറ്റവും അദ്ദേഹത്തെ സംശയദൃഷ്ടിയിലാക്കിയിട്ടിണ്ട്

ബിക്കാനീർ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ് ചോദ്യം ചെയ്യുന്നത് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മൂന്ന് തവണ അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് അധികൃതർ ചോദ്യം ചെയ്തിരുന്നു

ബി ഐ മേഘാലയത്തിലെ ഷില്ലോങ്ങിൽ ഇന്നും ചോദ്യം ചെയ്യും തുടർച്ചയായ നാലാം ദിവസമാണ് അദ്ദേഹത്തെ സിബിഐ ചോദ്യം ചെയ്യുന്നത് കേസുമായി ബന്ധപ്പെട്ട് റ്റി

സി മുൻ എം

ബി ഐ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു

രാജീവിന് എതിരായ കോൺഗ്രസ് ആരോപണത്തെ തുടർന്നാണ് കേന്ദ്രഗവൺമെന്റ് വിശദീകരണം റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ രാജീവിന്റെ ഇടപെടൽ സി എ ജി റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നാണ് കോൺഗ്രസ് ആരോപിച്ചത്

സമുദ്രത്തിലെ മലിനീകരണം വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് നോർവേയുമായി ചേർന്ന് ഇന്ത്യ നിർമ്മാർജ്ജന നടപടികൾ സ്വീകരിക്കുന്നത്

നിലവിലെ വനിതാ ചാമ്പ്യൻ സൈന നെഹ്വാൾറണ്ണർ അപ്പ് പി

എസ് പ്രണോയ്റണ്ണർ അപ്പ് കിടംബി ശ്രീകാന്ത് എന്നിവർ പരിക്കിനെ തുടർന്ന് മത്സരിക്കില്ല ഇവർക്കു പകരം ചാമ്പ്യൻ സമിർ വെർമ്മ പാരുപ്പള്ളി കശ്യപ് എന്നിവർ മത്സരിക്കും

അഫ്ഗാനിസ്ഥാന്റെ ലെഗ് സ്പിന്നർ റാഷിദ് ഖാൻ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

കുൽദീപിനെ കൂടാതെ മറ്റ് ഇന്ത്യൻ ബൌളർമാർക്ക് ആദൃ പത്തിൽ ഇടം പിടിക്കാനായില്ല

ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ ഉപനായകൻ രോഹിത് ശർമ ഏഴാം സ്ഥാനത്തേക്ക് താണു

പരമ്പരയിൽ കളിക്കാതിരുന്ന നായകൻ വിരാട് കോഹ്ലിക്കും സ്ഥാന ചലനമുണ്ടായി

മണ്ഡല മകരവിളക്ക് കാലത്തെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ മൂന്ന് എസ് പി മാരുടെ നേതൃത്വത്തിൽ കനത്ത പൊലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സന്നിധാനത്ത് വി അജിത്തും പമ്പയിൽ എച്ച് മഞ്ജുനാഥും നിലയ്ക്കലിൽ പി

മധുവും സുരക്ഷാ മേൽനോട്ടം വഹിക്കും

പരമ്പരഗ്ഗത ചടങ്ങായ തോറ്റംപാട്ടും ഇന്ന് ആരംഭിക്കും

വർഗ്ഗീയതയോടുളള സമരസപ്പെടൽ രീതി അവസാനിപ്പിച്ച് കോൺഗ്രസ് യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയാകണമെന്നും മുഖൃമന്ത്രി പറഞ്ഞു